ഡൽഹി മുഖ്യമന്ത്രിയായി മൂന്നാം വട്ടവും അരവിന്ദ് കെജ്രിവാൾ

സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമ കേസുകൾ നേരിടുന്നതിൽ പോലീസിന് വീഴ്ച ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

ഡൽഹിയിൽ ഇന്ന് രാവിലെ ചേർന്ന പാർട്ടി എം എൽ

കെജ്രിവാളിനെ നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തു

ബിജെപി എട്ട് സീറ്റ് നേടി

ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്

അക്രമത്തിൽ പാർട്ടി പ്രവർത്തകരിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടു്

കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് വിശദമായ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യൂസഭയിലും ലോക്സഭയിലും നടന്നത്

കേന്ദ്രഗവൺമെന്റ് മികച്ച സ്ടൂസ്പത്തിക അച്ചടക്കമാണ് പാലിക്കുന്നതെന്ന് മന്ത്രി ്നിർമ്മല് സീതാരാമൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പ്ലിക്കയറ്റം നിയന്ത്രിച്ചു ഭക്ഷ്യ വിലവർദ്ധന കടിഞ്ഞാൺ വിട്ടുപോകാതെ പിടിച്ചുനിർത്താനായി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തന്റെ സുഹൃത്താണെന്നും മഹാനായ വ്യക്തിത്വത്തിനുടമയാണെന്ന സന്ദർശന വിവരം പ്രഖ്യാപിക്കവെ ശ്രീ ട്രംപ് പറഞ്ഞു

ഇന്ത്യയിൽ നിന്നും വിയറ്റ്നാമിലേയ്ക്ക് നേരിട്ട് വിമാന സർവ്വീസ് ആരംഭിക്കുന്നതിന്റെ പ്രഖ്യാപനവും അവർ ഇന്ന് നിർവ്വഹിക്കും

നാളെ അദ്ദേഹം ബോധ് ഗയ സന്ദർശിക്കും

പ്രാദേശിക കർഷക്കരെ സന്ദർശിച്ച ശേഷം പ്രതിനിധികൾ ലഫ്റ്റനന്റ് ഗവർണർ ജി

പ്രധാൻമന്ത്രി ജൻ ധൻ യോജനയ്ക്ക് കീഴിൽ മുതിർന്നവർക്ക് ബാങ്ക് അക്കൌുകൾ തുറക്കുന്നതിനും കേന്ദ്രസർക്കാരിന്റെ നിരവധി പദ്ധതികൾ വഴി ഭവന വായ്പകൾ ലഭിക്കുന്നതിനും അർഹരായവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകളും മറ്റ് നിരവധി ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇതിലൂടെ സാധിക്കും

ചെന്നൈയിൽ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തമിഴ്നാട് നെഹ്റു യുവ കേന്ദ്രം ഡയറക്ടർ സംഘത്തിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

ഗുജറാത്ത് ഉൾപ്പെടെ രാജ്യമൊട്ടാകെ പ്രിൻ ്സി സി നിരവധി പരിപാടികൾ നടത്തിവരികയാണെന്ന് എൻ സി സി ഗ്രുജറാത്ത് മേഖലാ പ്രതിരോധ ഉദ്യോഗസ്ഥൻ പുനീത് ഛദ്ധ ആകാശവാണിയോട് പറഞ്ഞു

രോഗബാധ ഇനിയും നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചിട്ടില്ല

ഇതിനിടെ കൊറോണ വൈറസ് വൻ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നു ലോകാരോഗൃ സംഘടനാ മേധാവി ടെഡ്രോസ് അധനോം ജനീവയിൽ മുന്നറിയിപ്പു നൽകി

ആലപ്പുഴയിലെ ദേശീയ വൈറോളജി കേന്ദ്രത്തിന്റെ പ്രാദേശിക യൂണിറ്റിൽ നടന്ന പരിശോധനയുടെ ഫലമായാണ് ഈ റിപ്പോർട്ട്

വാഗദ് പ്രദേശത്തു നിന്ന് ഇന്നലെയാണ് പെട്രോളിങ്ങ് സംഘം ഇയാളെ പിടികൂടിയത്

പ്രകാരം തടങ്കലിൽ വച്ചതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ വാദം കേൾക്കും

ഒമറിന്റെ സഹോദരി സാറാ അബ്ദുള്ള പൈലറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് എൻ

രമണ ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്

കിഷ്ത്വാർ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് ഇവർ സഞ്ചരിച്ച കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആഴമുള്ള മലയിടുക്കിലേക്ക് പതിക്കുകയായിരുന്നു

നിരവധി പേരെ കാണാതായി ഇന്നലെ റൈവ്കൂന്നേരമാണ് അപകടം

ചൊവ്വാഴ്ച പൂലർച്ച ഏത്ക്കൂകിഴക്കൻ ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ തുറമുഖത്തുണ്ണു്മാണ് ബോട്ട് പുറപ്പെട്ടത്

സ്ത്രീസുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ സർക്കാർ ഇതിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രമേയത്തിന് അനുമതി തേടിയ ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു

പോലീസ് ലാഘവത്തോടെയാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കൂടുതൽ പേർ പരാതിപ്പെടാൻ തയ്യാറാകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത പുലർത്തുന്നതായും ശക്തമായ നിയമനടപടികളും ഊർജ്ജിത അന്വേഷണവും നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു

ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും ചർച്ചകൾക്ക് മന്ത്രി മറുപടി നൽകും

രാജ്യത്തിന്റെ പൊതുതാൽപ്പര്യമാകണം പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു

വൈകീട്ട് ഏഴിന് കോയമ്പത്തൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മുത്സർറു

ഗെയിംസിന്റെ ഭാഗമായി സാംസ് കാരിക പരിപാടികളും ഒരുക്കൂിയിട്ടു്